എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ജയം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് കൊവിഡ് അതിതീവ്ര വ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും ഇതുസംബന്ധിച്ച ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറങ്ങി ഞായറാഴ്ചകളിൽ ആൾക്കൂട്ടത്തിനും കടകൾ തുറക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുജനങ്ങൾ അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും നിർദേശമുണ്ട് ഇതോടൊപ്പം കൊവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനായി ദുരന്തനിവാരണ ഫണ്ടിൽ നിന്ന് ഓരോ ജില്ലക്കും അഞ്ചുകോടി രൂപ അനുവദിച്ചു ദേദ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവർക്ക് പാലക്കാട് ജില്ലാ അതിർത്തിയിൽ ഇന്ന് പരിശോധന ആരംഭിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ആരോഗ്യ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ജില്ലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രവേശനത്തിന് അനുമതി നൽകുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ദര സംസ്ഥാനത്ത് കോവിഡ് കോവിഡാനന്തര ചികിത്സക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ക്ഷാമം നേരിടാൻ ഗവൺമെന്റ് നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി താമസിയാതെ ആവശ്യമായ മരുന്നുകൾ സംസ്ഥാനത്ത് എത്തിക്കുമെന്ന് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അറിയിച്ചു കൊവിഡ് ചികിത്സക്കും കോവിഡാനന്തര ചികിത്സക്കും ആവശ്യമായ മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കാൻ ഇടപെടണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ഒരു ദിവസം ഇത്രയധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ആദ്യമാണ് തുടർച്ചയായ മൂന്നാം ദിവസമാണ് രോഗികളുടെ എണ്ണം പതിനായിരത്തിന് മുകളിലെത്തുന്നത്

മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിലാണ് രോഗികൾ

ന്യൂസ്ഡസ്ക് ആകാശവാണി ദേദ എറണാകുളം ജില്ലയിൽ കോവിഡ് പ്രതിരോധം ശക്തമാക്കാൻ മന്ത്രി കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ ചേർന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം തീരുമാനിച്ചു

കിടക്കകൾ അടുത്തയാഴ്ച പൂർണസജ്ജമാക്കും കളമശ്ശേരി മെഡിക്കൽ കോളജിനെയും ഫോർട്ട് കൊച്ചി താലൂക്കാശുപത്രിയേയും പൂർണമായും കോവിഡ് ആശുപത്രിയാക്കി മാറ്റും ഗവൺമെന്റ് മേഖലയിൽ ആയിരം ഓക്സിജൻ കിടക്കകൾ തയ്യാറാക്കുവാനും യോഗത്തിൽ തീരുമാനമായി

ചികിത്സ പ്രതിരോധം ഗവേഷണം ക്രൈസിസ് മാനേജ്മെന്റ് എന്നിങ്ങനെ നാല് മേഖലകളായി തിരിച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകി ലോക്ഡൌൺ വേണ്ടെന്നും രോഗപ്രതിരോധത്തിന് തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ചെന്നിത്തല കത്തിൽ നിർദ്ദേശിച്ചു ദേദ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം കൂടിവരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും കൂടുതൽ ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തും കോവിഡ് രോഗബാധിതരെ ചികിത്സിക്കുന്നതിനായി ബീച്ച് ആശുപത്രി കോവിഡ് ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റലായി മാറ്റി ജില്ലാ കലക്ടർ ഉത്തരവിറക്കി ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും പ്രധാന ആശുപത്രികളിലും കോവിഡ് ബാധിതരെ ചികിത്സിക്കുന്നതിനായി അടിയന്തര ഉപയോഗത്തിന് ബെഡ്ഡുകളും ഓക്സിജൻ സിലിണ്ടറുകളും സജ്ജമാക്കിയതായും കലക്ടർ അറിയിച്ചു എല്ലാ സ്വകാര്യ ആശുപത്രികളും കോവിഡ് ചികിത്സ ആരംഭിക്കുകയും കിടത്തി ചികിത്സക്കായി ഐ

ദര കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിലെ ഓക്സിജൻ ഉത്പാദകരുടേയും വിതരണക്കാരുടെയും യോഗം ഓൺലൈനായി വിളിച്ചു ചേർത്ത് ജില്ലാ കലക്ടർ സാംബശിവ റാവു സ്ഥിതി വിലയിരുത്തി നിലവിലെ സാഹചര്യത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിക്കാൻ ശേഷി ഉണ്ടെന്ന് ഉത്പാദകരും വിതരണക്കാരും ഉറപ്പു നൽകി

ദര കൊല്ലം ജില്ലയിൽ നിലവിലെ കോവിഡ് സാഹചര്യം പരിഗണിച്ചു ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി ലഭിക്കാതെ കോളജുകൾ ഉൾപ്പടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഓൺലൈൻ മുഖേനയല്ലാതെ ക്ലാസുകളോ പരീക്ഷകളോ നടത്തുവാൻ പാടില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ദേദ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നത് നിരോധിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു ഫാർമസ്യൂട്ടിക്കൽ പെട്രോളിയം റിഫൈനറികൾ സ്റ്റീൽ പ്പാന്റുകൾ തുടങ്ങി ഒൻപത് വ്യവസായ സ്ഥാപനങ്ങൾക്കൊഴികെ ഓക്സിജൻ വിതരണം നിർത്തിവെക്കാനാണ് കേന്ദ്ര നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് ദേദ കേരളം ഉൾപ്പെടെ ഉയർന്ന തോതിൽ കോവിഡ് രോഗികളുള്ള സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ ഓക്സിജന് ആവശ്യം അതിവേഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ചീഫ് സെക്രട്ടറിമാർക്കും അഡ്മിനിസ്ട്രേറ്റർമാർക്കും അയച്ച കത്തിൽ അറിയിച്ചു ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർമ്മാതാക്കളും വിതരണക്കാരും വ്യവസായിക സ്ഥാപനങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നത് നിർത്തി വെക്കണമെന്ന് ഉന്നതാധികാര ഗ്രൂപ്പ് കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞദിവസം ശുപാർശ നൽകിയിരുന്നു അതിനിടെ വൈദ്യോപദേശമനുസരിച്ചാണ് റെംഡിസിവിർ എടുക്കേണ്ടതെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് കെ

ഈ മരുന്ന് കോവിഡ് ഭേദമാക്കുകയില്ലെന്നും ആശുപത്രിവാസം കുറയ്ക്കാൻ മാത്രമാണ് ഉപകരിക്കുകയെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ കൊവിഡ് വ്യാപനം തടയാൻ എന്റെ ബൂത്ത് കൊറോണ മുക്തം ക്യാമ്പയിൻ നടത്താൻ ബി ജെ പി ദേശീയ പ്രസിഡന്റ് ജെപി നദ്ദ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു

ദേദ തൃശൂർ പൂരത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റു കുറയ്ക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾക്കു തന്നെ പ്രഥമ പരിഗണന നൽകണമെന്ന ഗവൺമെന്റ് നിബന്ധന പാലിച്ച് പൂരം നടത്താനും തീരുമാനമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുമായും ഉന്നതതല വകുപ്പു മേധാവികളുമായും ജില്ലാ കലക്ടർ എസ് ഷാനവാസ് നടത്തിയ അവലോകന യോഗത്തിലാണ് തീരുമാനം

ദേദ തൃശൂർ പൂരത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ദേവസ്വങ്ങൾ എതിർപ്പ് ഉന്നയിച്ച സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി വി പി ജോയ് വിളിച്ച നിർണായക യോഗം ഇന്ന് ജില്ലാ കലക്ടർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ കമ്മീഷണർ ഡി

ഒ എന്നിവർ പങ്കെടുക്കും

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും ജയം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിംഗ്സിനെ ആറുവിക്കറ്റിനാണ് ഡൽഹി ക്യാപ്പിറ്റൽസ് തോൽപ്പിച്ചത്

ഈ സീസണിലെ രണ്ടാം വിജയത്തോടെ ഡൽഹി ക്യാപ്പിറ്റൽസ് പോയിന്റ് പട്ടികയിൽ രണ്ടാമതെത്തി

ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും

പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ ഇനത്തിൽ ഇന്ത്യ ഏഴ് മെഡലുകൾ കരസ്ഥമാക്കി ദേദ എറണാകുളം മുട്ടാർ പുഴയിൽ പതിമൂന്നുകാരി വൈഗയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായ പിതാവ് സനു മോഹനെ പുലർച്ചെ കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്നു ഇന്നലെ കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനു മോഹൻ പോലീസ് പിടിയിലായത് അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും ദേദ കളിക്കളങ്ങൾ ഉണ്ടാക്കാൻ ആയിരം കോടി രൂപയാണ് കിഫ്ബി വഴി നീക്കിവെച്ചിരിക്കുന്നതെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു

ആലപ്പുഴയിൽ ഡീ സ്പോർട്സ് ഫുട്ബോൾ ടർഫ് കോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തോമസ് ഐസക് ദേദ കണ്ണൂർ പാനൂരിലെ മുസ്ലിംലീഗ് പ്രവർത്തകൻ മൻസൂർ വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന എട്ട് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രതികളെ ഏഴുദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘത്തലവൻ സമർപ്പിച്ച അപേക്ഷയിൽ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പ്രതികളെ ഹാജരാക്കാൻ ഉത്തരവിട്ടിരുന്നു ദേദ കാസർകോട് മടിക്കൈ വെള്ളൂട സോളാർ പാർക്കിൽ വൻ തീപിടിത്തം ഇന്നലെ വൈകീട്ടോടെ ഉണ്ടായ തീപിടിത്തത്തിൽ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ മുഴുവനും കത്തി നശിച്ചു ദേദ സംസ്ഥാനത്ത് കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണറെ കാണും